സി മൊയ്തീൻ

ശബരിമലയിൽ മകരവിളക്ക് ഇന്ന്

ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് ഇന്നു മുതൽ നടപ്പാക്കും

പാലക്കാട് തൃശൂർ ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി പുരോഗതി അവലോകന യോഗത്തിൽ പാലക്കാട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കോഴിക്കോട് മേലടി ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് കുടുംബസംഗമവും അദാലത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലൈഫ് ഭവന പദ്ധതി ഉൾപ്പടെ ഗവൺമെന്റ് തുടങ്ങിവെച്ച പദ്ധതികൾ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ തുടരുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി ഡോ

തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും അദാലത്തും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹരായവർക്ക് ഇനിയും വീടുകൾ നിർമ്മിക്കുമെന്നും ഇതുവഴി സംസ്ഥാനത്ത് ഭവന രഹിതർ ഇല്ലാതാകുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ യോഗൃതകൾക്കനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കിയാൽ മാത്രമേ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ മറ്റുള്ളവർക്കൊപ്പം ഉയർത്താൻ കഴിയൂ എന്ന് മന്ത്രി എ

പട്ടിക വിഭാഗക്കാരുടെ സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക എന്നതാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കതിരൂരിൽ ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ വലിയ പദ്ധതികളാണ് ഗവൺമെന്റ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി കെ

പുനലൂർ നഗരസഭ നൂതന പദ്ധതിയിൽ പെടുത്തി പട്ടികജാതി വയോജനങ്ങൾക്ക് നൽകുന്ന കട്ടിലിന്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ഫാസ്ടാഗില്ലാത്ത വാഹനങ്ങൾക്ക് ടോൾപ്പാസകളിൽ ഇനി ഒരു ട്രാക്ക് മാത്രമാണുണ്ടാവുക ഫാസ്ടാഗില്ലാത്ത വാഹനങ്ങൾ ഈ ട്രാക്കിലൂടെ കടന്നു പോകേണ്ടി വരും ലക്ഷറി ബസ്സുകൾക്ക് പെർമിറ്റ് ഇല്ലാതെ സർവ്വീസ് നടത്തുന്നതിന് അനുവാദം നൽകുന്ന കേന്ദ്രകരട് വിജ്ഞാപനത്തെക്കുറിച്ച് പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി എ

വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം തീരുമാനം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു വിഷയം വിശദമായി പരിശോധിക്കുന്നതിന് മറ്റന്നാൾ ഉന്നതതല യോഗം മന്ത്രി വിളിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ലക്ഷറി എ സി ബസുകൾ പെർമിറ്റ് ആവശ്യമില്ലാതെ സംസ്ഥാനത്തിനകത്തും അന്തർസംസ്ഥാനത്തിലും സർവ്വീസ് നടത്താൻ അനുവദിച്ചാൽ അത് സംസ്ഥാനത്തെ കെ എസ്

സി ബസ്സ് സർവീസിനെയും സാധാരണ ഫ്ളീറ്റ് ഓണർമാരായ ചെറുകിട ബസ് ഓപറേറ്റർമാരെയും സാരമായി ബാധിക്കുമെന്നാണ് സൂചനയെന്നും മന്ത്രി അറിയിച്ചു

നിയന്ത്രണ രേഖയിൽ മച്ചിൽ സെക്ടറിൽ സൈനിക പോസ്റ്റിലുണ്ടായ ഹിമപാതത്തിലാണ് അഞ്ചു സൈനികർ മരിച്ചത് നൌകാം സെക്ടറിൽ സൈനിക പോസ്റ്റിൽ ഹിമപാതമുണ്ടായി ഒരു ബി

ഗണ്ടർബാൽ ബന്ദിപ്പോര ജില്ലകളിലെ ഹിമപാതത്തിലാണ് ആറ് നാട്ടുകാർ മരിച്ചത് ശബരിമലയിൽ ദീപക്കാഴ്ച ഒരുക്കി ഇന്ന് മകരവിളക്ക് ശബരിമലയിൽ പുലർച്ചെ രണ്ടിന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്തിൽ മകര സംക്രമപൂജ നടന്നു

തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവമായ പൊങ്കൽ ആഘോഷത്തെ വരവേറ്റ് ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളും പൊങ്കലിൽ ഏറെ പ്രാധാന്യം നൽകുന്ന കരിമ്പും കാപ്പുകെട്ടും തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചാണ് ഇവിടെ വിറ്റഴിക്കുന്നത് തമിഴ് ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് പൊങ്കൽ നാല് ദിവസം നീണ്ട്നിൽക്കുന്നതാണ് പൊങ്കലാഘോഷം ബോഗി തൈപൊങ്കൽ മാട്ടുപൊങ്കൽ കാണും പൊങ്കൽ എന്നിങ്ങനെയാണ് ഓരോ ദിവസ്സത്തെയും ആഘോഷം ശബരിമല റെയിൽ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിസ്റ്റഹകരണം പ്രതിഷേധാർഹമാണെന്ന് ഡീൻകുര്യാക്കോസ് എം

നിർഭയ കേസിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നാല് പ്രതികളിൽ ഒരാൾ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി സുപ്രീംകോടതി പിഴവു തീർക്കൽ ഹർജി തള്ളിയ ഉടൻ മുകേഷ് സിങ്ങാണ് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയത്

ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി മുംബൈയിൽ പത്തു വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചത്

രണ്ടാം ഏകദിനം വെള്ളിയാഴ്ച രാജ്കോട്ടിൽ നടക്കും ഗോഹട്ടിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ കേരളം ഓവറോൾ ചാമ്പ്യൻമാരായി

ഒമ്പത് സ്വർണവുമായി ഹരിയാന രണ്ടാം സ്ഥാനത്തും എട്ട് സ്വർണ്ണം നേടി തമിഴ്നാട് മൂന്നാം സ്ഥാനത്തുമെത്തി

അത്ലറ്റിക്സിൽ കിരീടം നേടിയ കേരള ടീമിനെ മന്ത്രി ഇ പി ജയരാജൻ അഭിനന്ദിച്ചു കായിക രംഗത്ത് കേരളം കൈവരിക്കുന്ന വളർച്ചയുടെ സൂചനയാണ് ഈ നേട്ടമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ മറ്റു കായിക ഇനങ്ങളിലും മികവു പുലർത്താൻ കേരളത്തിന് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്

അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്താണ് ഗോകുലം കണ്ണൂർ സർവ്വകലാശാല കലോത്സവം ഇന്ന് പയ്യന്നൂരിൽ ആരംഭിക്കും

ഇന്നും നാളെയും സ്റ്റേജിതര മത്സരങ്ങൾ നടക്കും

ജലീൽ ഉദ്ഘാടനം ചെയ്യും

ഭാരതീയ മനസ്സ് എന്നും മാനവികത ഉൾക്കൊണ്ടിരുന്നുവെന്നും മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന എന്തിനെയും വർജ്ജിച്ചിരുന്നുവെന്നും കാലിക്കറ്റ് സർവ്വക്ലാശാല വൈസ് ചാൻസലർ ഡോ അനിൽ വള്ളത്തോൾ പറഞ്ഞു സർവ്വകലാശാലയിൽ തെന്നിന്ത്യൻ ചരിത്രം സംബന്ധിച്ച് മൂന്നു ദിവസത്തെ യു

സി ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര പ്രകടന കലാശിൽപശാല കാലിക്കറ്റ് സർവകലാശാലയിൽ തുടങ്ങി തിരുവനന്തപുരം ആകാശവാണി മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ എസ് സരസ്വതിഅമ്മ തിരുവനന്തപുരത്ത് അന്തരിച്ചു

മഹിളാലയം ചേച്ചി എന്ന പേരിൽ പ്രസിദ്ധയായ സരസ്വതിഅമ്മ സ്ത്രീകളുടേയും കുട്ടികളുടേയും പരിപാടിയുടെ പ്രൊഡ്യൂസറായാണ് ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ചത് സംസ്കാരം നാളെ നടക്കും ഇടുക്കി ജില്ലയിലും പീരുമേട് താലൂക്കിലും കമ്യൂണിസ്റ്റ് പാർടിയും തൊഴിലാളി പ്രസ്ഥാനവും സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മുതിർന്ന സിപിഐഎം നേതാവ് അബ്ദുൾ വഹാബ് തമിഴ്നാട്ടിലെ കമ്പത്ത് നിര്യാതനായി പാർട്ടിയുടെ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്

ചെങ്ങന്നൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു

ടി ഐ എം

എ വിദ്യാർഥികളായ അഭിരാജ് ജയൻ എന്നിവരാണ് മരിച്ചത് കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ കാറും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ചു

കാറിലുണ്ടായിരുന്ന ആറുപേർക്ക് പരിക്കേറ്റു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിന്റെ ഭാഗമായി നൽകിയ പിഴയിളവ് സമയപരിധി ഇന്ന് അവസാനിക്കും ഈ മാസം ഒന്ന് മുതലാണ് സംസ്ഥാനത്ത് പ്ലാസ്റ്റിക്ക് നിരോധനം നിലവിൽ വന്നത് പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് ബദൽ ഉത്പന്നങ്ങളും വീട്ടുകളിലുൾപ്പെടെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന മാർഗങ്ങളും ഉൾപ്പെടുത്തി ശുചിത്വ സംഗമം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്ന് സൂര്യകാന്തിയിൽ ഇന്ന് തുടക്കമാവും ഹരിതകേരളം മിഷനും തദ്ദേശസ്വയംഭരണ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി നൂറിലേറെ സ്റ്റാളുകളുണ്ടാവും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്ക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ പാലക്കാട് കൂറ്റനാട് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു

തിരൂരങ്ങാടി മോട്ടോർ വെഹിക്കിൾ ഇൻസ് പെക്ടർ സുനിൽബാബുവിനെയും പട്ടാമ്പി എം

തിരൂരങ്ങാടിയിലെ ഒരു ഹോട്ടലിൽ ഡ്രൈവിങ് സ്കൂൾ ഏജന്റുമാരുമായി അനൌദ്യോഗിക യോഗം ചേർന്നതിനാണ് നടപടി